വൈകിട്ട് കൊച്ചിയിൽ മുഖ്യ മന്ത്രിയുമായി ചർച്ചു

എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് വയ്നാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മഴ തുടരുന്നു

ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ആഭ്യന്തര മന്ത്രാലയ ത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പ മുണ്ടായിരിക്കും

ഇടു ക്കി ചെറുതോണി ഡാം പരിസരപ്രദേശങ്ങൾ ഉരുൾപൊ ട്ടലുണ്ടായ തടിയമ്പാട് അടിമാലി മേഖല വെള്ളപ്പൊ ക്കമുണ്ടായ ആലുവ പറവൂർ എന്നിവിടങ്ങൾക്ക് മുക ളിലൂടെയായിരിക്കും ആഭ്യന്തരമന്ത്രിയുടെ യാത്ര രണ്ടരയോടെ തിരിച്ച് വിമാനത്താവളത്തിലെത്തുന്ന രാജ്നാഥ് സിംഗ് പറവൂർ താലൂക്കിലെ ദുരിതാശ്ചാസ ക്യാമ്പിലേക്ക് റോഡ് മാർഗ്ഗം പോകും നാലുമണിവരെ ക്യാമ്പുകൾ സന്ദർശിക്കുന്ന അദ്ദേഹം നാലരയോടെ കൊച്ചി വിമാന ത്താവള ഓഫീസിലെത്തും തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെ ടുന്ന സംഘവുമായി അഞ്ചുമണിക്ക് ചർച്ച നടത്തും

കഴിഞ്ഞ ബുധനാഴ്ച മുതലുണ്ടായ ദുരന്തങ്ങളിലാണ് ആൾനാശവും വൻ നാശനഷ്ടങ്ങളു മുണ്ടായത് ഇന്നലെ തോണിമറിഞ്ഞ് തിരുവനന്തപുരത്ത് രണ്ടുപേരും കുട്ടനാട്ടിൽ വെള്ളക്കെട്ടിൽ വീണ് അമ്മയും മകളും മറ്റ് ജില്ലകളിൽ നാലുപേരും മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത് പാലക്കാട് വയനാട് ജില്ലകളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതോടെ വെള്ളമിറങ്ങാൻ തുടങ്ങി

മധ്യഅറബിക്കടൽ മേഖലയിൽ മീൻപി ടുത്തത്തിന് പോകരുതെന്ന് തൊഴിലാളികളോട് ആവശ്യ പ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടൽ ഭാഗത്തും കനത്ത മഴ യുണ്ടാകും എട്ട് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെത്തുടർന്ന് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം പാലക്കാട് ഇടു ക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ച വരെയും കണ്ണൂർ ആലപ്പുഴ ജില്ലകളിൽ നാളെവരെയും റെഡ് അലർട്ട് തുടരും

അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറ ഞ്ഞതിനാൽ നീരൊഴുക്കിലും കുറവുണ്ടായി അഞ്ച് ഷട്ട റുകളിലൂടെ സെക്കന്റിൽ ഏഴരലക്ഷം ലിറ്റർ വെള്ളം തുറന്നുവിട്ടിരിക്കുകയാണ് നീരൊഴുക്ക് ദുർബ്ബലമാകു ന്നതുവരെ അണക്കെട്ട് തുറന്നിടാനാണ് തീരുമാനം കനത്ത മഴയുണ്ടായില്ലെങ്കിൽ നാലോ അഞ്ചോ ദിവസ ത്തിനകം സ്ഥിതിഗതിൽ മുൻ നിലയിലേക്ക് എത്തിയേ ക്കുമെന്നാണ് പ്രതീക്ഷ ചെറുതോണി ബസ് സ്റ്റാന്റിനും പാലത്തിനുമുണ്ടായ കേടുപാടൊഴിച്ചാൽ ഷട്ടർ തുറ ന്നതു വഴി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടി ല്ല സംസ്ഥാന ഗവൺമെന്റിനോടും ജില്ലാ ഭരണകൂട ത്തോടും കൂടിയാലോചിച്ച് മാത്രമേ കെ എസ്

ബി ഷട്ടർ അടക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് മന്ത്രി എം

മണി അറിയിച്ചു

ക്യാമ്പുകളിൽ വൈദ്യസഹായം ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടു ണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അടിമാലി മേഖലയിൽ മണ്ണിടിഞ്ഞ് ഗൃതാഗൃതം തടസ്സ പ്പെട്ട കൊടകല്ല് പ്ലാമലക്കുടി ആദിവാസി കുടികളി ലേക്ക് കരസേനയുടെ സഹായത്തോടെ മണ്ണ് നീക്കം ചെയ്തു പത്തനംതിട്ട ജില്ലയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമാ യി

റാന്നി കോഴഞ്ചേരി മല്ലപ്പ ള്ളി തിരുവല്ല താലൂക്കുകളിലാണ് കെടുതികൾ കൂടുത ലും

ചങ്ങനാശ്ശേരി പായിപ്പാട്ട് സ്വദേശി ജിതിൻ തോമസ് മാത്തനെയാണ് കാണാതാ യത് താമരശ്ശേരി ചുരത്തിൽ രണ്ടാം വളവിലെ അപകടാവസ്ഥ യിലായ കെട്ടിടം അടിയന്തിരമായി പൊളിച്ചുനീക്കാൻ മന്ത്രി മാരായ ടി പി രാമകൃഷ്ണൻ എ കെ ശശീന്ദ്രൻ എന്നിവർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കുറ്റ്യാടി ചുരം റോഡ് ഗതാഗതയോഗ്യമാക്കാൻ നടപടിയെടുത്തതായും കക്കയം ഡാം സൈറ്റ് റോഡ് അറ്റകുറ്റപ്പണിക്ക് അടിയന്തിര നട പടിയെടുക്കുമെന്നും ടി പി രാമകൃഷ്ണൻ അറിയിച്ചു കോഴി ക്കോട്ട് കാലവർഷക്കെടുതി അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്തുക ളിൽ മൂന്ന് ദിവസത്തിനകം യോഗം ചേർന്ന് കെടുതി വില യിരുത്തണം ഇന്നുൾപ്പെടെ അവധി ദിവസങ്ങളിൽ ഉദ്യോ ഗസ്ഥർ ജോലിക്കെത്തണമെന്നും അവലോകന യോഗം നിർദ്ദേശിച്ചു കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലും മഴ തുടരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മഴയ്ക്ക് ശക്തി കുറവാണ്

മഴക്കെടുതിയിൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടവർക്ക് പകരം രേഖകൾ നൽകാൻ വിവര ശേഖരണം നടത്തു ന്നതിന് പാലക്കാട് ജില്ലയിൽ നാളെയും മറ്റന്നാളും ക്യാമ്പുകൾ സംഘടിപ്പിക്കും മന്ത്രി എ

ദുരന്ത സാഹചര്യം കണക്കിലെടുത്ത് ഉദ്യോഗസ്ഥരുടം ഓണാവധിയിൽ കുറവുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു മലവെള്ളപ്പാച്ചിലിൽ പൈപ്പ് ലൈൻ ഒലിച്ചുപോയ തിനെത്തുടർന്ന് നിലച്ച പാലക്കാട് നഗരത്തിലെ ശുദ്ധ ജല വിതരണം പുനരാരംഭിച്ചു യുദ്ധകാലാടിസ്ഥാന ത്തിൽ അറ്റകുറ്റപ്പണി നടത്തി ഇന്നലെ വൈകിട്ടോടെ യാണ് മലമ്പുഴയിൽനിന്ന് ജലവിതരണം പുനരാരംഭിച്ച ത് രണ്ട് ദിവസത്തിനകം ജലവിതരണം പുനഃസ്ഥാപിച്ച ജല അതോറിറ്റിയെ മന്ത്രി എ കെ ബാലൻ അവലോ കന യോഗത്തിൽ അഭിനന്ദിച്ചു

രാത്രി യിൽ ശക്തമായ മഴയുണ്ടായി വയനാട് മൈസൂർ പാത യിലെ ഗതാഗത നിയന്ത്രണം ഇന്നും തുടരും നഞ്ചൻകോട് ഭാഗത്തുകൂടി ഗതാഗതം തിരിച്ചുവിട്ടിരിക്കു കയാണ് കബനി നദി കരകവിഞ്ഞൊഴുകുന്നതിനാൽ പല യിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ മഴ വീണ്ടും ശക്തമായി

കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കു ന്നവരെ സഹായിക്കാൻ ഇരിട്ടി താലൂക്കിൽ ദിരുതാ ശ്വാസ സഹായ സ്വീകരണകേന്ദ്രം തുറന്നു സാഹിത്യകാരനും നൊബൈൽ ജേതാവുമായ വി എസ് നൈപോൾ അന്തരിച്ചു

ബുക്കർ പ്രൈസ് ഉൾപ്പെടെ മറ്റ് നിര വധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്

ഇംഗ്ല ണ്ടിന്റെ ക്രിസ്വോക്സ് സെഞ്ചറി നേടി കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച മൃദംഗ വാദ്യകാ രനും സിനിമാ സാംസ്കാരിക പ്രവർത്തകനുമായ ഹരി നാരായണന്റെ സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടത്തും

ജോൺ എബ്രഹാമിന്റെ അമ്മ അറി യാൻ എന്ന ചിത്രത്തിലെ നായകവേഷം അദ്ദേഹത്തി നായിരുന്നു

മൃതദേഹം ഉച്ചയ്ക്ക് ടൌൺഹാളിൽ പൊതു ദർശനത്തിന് വെയ്ക്കും മുനമ്പത്തുനിന്ന് മീൻപിടുത്തത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി മാലിയങ്കർ സ്വദേശി ഷിജുവിന്റെ മൃത ദേഹമാണ് വലയിൽ കുടുങ്ങിയത് കാണാതായ എട്ടു പേർക്കായി തെരച്ചിൽ തുടരുകയാണ് കാസർകോട്ടെ ഭാരത് ബീഡി തൊഴിലാളികൾക്ക് ജോലി ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായി വെട്ടിച്ചുരുക്കിയ നടപടിക്കെതിരെ തൊഴിലാളികൾ നാളെ ഹെഡ്ഡോഫീ സിന് മുന്നിൽ സത്യഗ്രഹ സമരം നടത്തും മാനേ ജ്മെന്റിന്റെ തൊഴിലാളിദ്രോഹ നടപടികളിൽ പ്രതിഷേ ധിച്ചാണ് സമരം ഇന്ന ത്തെയും അടുഞ്ഞ ഞായ റാ ഴ് ച ത്തെയും പാലക്കാട് എറണാകുളം പാലക്കാട് മെമു സർവ്വീസുകൾ പൂർണ്ണമായും റദ്ദാക്കി

കോഴിക്കോട് രാമനാട്ടുകരയിൽ വ്യാപാര സമുച്ചയ ത്തിലെ ഹോട്ടൽ തീപിടിച്ച് പൂർണ്ണമായി കത്തിനശി ച്ചു പുതിയ മേൽപ്പാലത്തിന് സമീപത്തെ സെൻട്രൽ റസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് രണ്ട് മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് തീയണച്ചത്

രഹസ്യ ഗോഡൌ ണിൽനിന്ന് ലോറിയിൽ അരി കടത്താൻ ശ്രമിക്കുന്നതി നിടെയാണ് പൊലീസ് അരി പിടിച്ചെടുത്തത് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു തൃശൂർ മുൻ മുനിസിപ്പൽ കൌൺസിലറും രാഷ്ട്രപ തിയുടെ പൊലീസ് അവാർഡ് ജേതാവുമായ എൻ പത്മനാഭമേനോൻ നിര്യാതനായി